കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സന്ദർശിച്ചു

ഉത്തരവാദിത്തംകൃൃതൃമായി നിറവേറ്റുമെന്ന് മന്ത്രി എ

നിർദ്ദേശമില്ലാതെ കോവിഡ് പരിശോധന നടത്താൻ അനുമതി

ജലസംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു

ജാമ്യാപേക്ഷ സാമ്പത്തിക കുറ്റകൃത്യ കോടതി തള്ളി

നികുതി അടവ് കൂടുതൽ എളുപ്പമാക്കുന്നതിന് ഹോണറിങ്ങ് ദി ഹോണസ്റ്റ് സംവിധാനം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് പുതിയ നികുതി പിരിവ് സംവിധാനം ഒരുക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് സമീപകാലത്ത് നിരവധി നികുതി പരിഷ്ക്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്

ലാഭവിഹിത നികുതി എടുത്തുകളഞ്ഞു

പ്രേമചന്ദ്രൻ എം

എ വായ്പകൾ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി ആശ്വാസം അനുവദിക്കണമെന്ന നിർദ്ദേശം പരിഗണിക്കാമെന്ന് മന്ത്രി അറിയിച്ചു

മന്ത്രി ഇ

നേരത്തെ മന്ത്രി എം

ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ

തൃശൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

തിരിച്ചറിയൽ കാർഡ് സമ്മതപത്രം എന്നിവ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ നൽകണം ജനങ്ങൾക്ക് നേരിട്ട് പോയി പി സി

സി ആർ ട്രൂനാറ്റ് ആന്റിജൻ പരിശോധനകൾ നടത്താനാവും

കോവിഡ് കോട്ടയം കോട്ടയം വൈക്കത്ത് ഞായറാഴ്ച ഹൃദയാഘാതം മൂലം മരിച്ച ഉദയനാപുരം ഇത്തിപ്പുഴ ചാക്കാട്ടിൽ സി

ആരോഗ്യ പ്രവർത്ത്കരും ബന്ധുക്കളും അടക്കം നിരവധി പേർ നിരീക്ഷണത്തില്ലായി

ഹൃദ്രോഗവും രക്തസമ്മ്ർദ്ദവും ഉണ്ടായിരുന്നു

മലപ്പുറം ജില്ലാ കളക്ടർ മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും കോവിഡ് വ്യാപനത്തിന്റെ ചെറിയ കൂട്ടങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കോവിഡ് പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി യോഗം നിർദേശം നൽകി

പെരിങ്ങൽകുത്ത് പൊന്മുടി എന്നിവയും കല്ലാർകുട്ടി ലോവർ പെരിയാർ മൂഴിയാർ തുടങ്ങിയ സംഭരണികളും കവിഞ്ഞു

വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ എൻ സി ജയചന്ദ്രൻ

മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാ തൊഴിലാളികളും കോവിഡ് ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ ബി

അന്യസംസ്ഥാന തൊഴിലാളികൾ കോവിഡില്ലാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയശേഷമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആലപ്പുഴ ഇൻട്രോ കാലവർഷം ആലപ്പുഴയിൽ കനത്ത നാശമാണ് വിതച്ചത്

ആകാശവാണി പ്രതിനിധി ആർ ്ട്രവികുമാർ നൽകുന്ന വിവരങ്ങൾ

സ്വപ്ന സുരേഷ് സെയ്ത് അലവി എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത് ബിജെപി പ്രക്ഷോഭം കണ്ണൂർ സ്വർണക്കള്ളകടത്ത് കേസിന്റെ ധാർമിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ കണ്ണൂർ മാരാർജി ഭവനിൽ ഉപവാസ സമരം തുടങ്ങി

കഴിഞ്ഞ രാത്രി തിരുവനന്തപുരം സ്ഥകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആകാശവാണിക്കുവേണ്ടി നിരവധി ലളിതഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്